ടി നിരക്കിലെ ഇളവുകൾ ഉപഭോക്താക്കൾക്ക് നൽകാത്ത സ്ഥാപ നങ്ങൾക്ക് പത്ത് ശതമാനം പിഴ ചുമത്താൻ ജി

ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും രുട്ട്ട്ട്ട്ട്ട്ട്ട്ട അഞ്ചുലക്ഷത്തോളം കുടുംബങ്ങൾക്ക് വീട് നൽകുന്ന ലൈഫ് മിഷൻ പദ്ധതി അടുത്തവർഷം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജ യൻ പറഞ്ഞു ഒറ്റപ്പെട്ട ചിലരാണ് സിവിൽ സർവീസിന് ആകെ പേരുദോഷ മുണ്ടാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഓഫീ സിലെത്തുന്ന അർഹരായവരെ അനാവശ്യമായി നടത്തിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു ആലപ്പുഴ ഹരിപ്പാട് റവന്യൂ ടവർ ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു മുഖ്യമന്ത്രി

ടി നിരക്കിലെ ഇളവുകൾ ഉപഭോക്താക്കൾക്ക് നൽകാത്ത സ്ഥാപനങ്ങൾക്ക് പത്തുശതമാനം പിഴ ചുമത്താൻ ന്യൂഡൽഹിയിൽ ചേർന്ന ജി

ടി കൌൺസിൽ യോഗം തീരുമാനിച്ചു

പുതിയ ജി

ഒറ്റഫോറത്തിൽ ഇലക്ട്രോണിക് ഇൻവോയിസിംഗ് സിസ്റ്റവും ജനുവരിയിൽ നിലവിൽ വരുമെന്ന് അദ്ദേഹം പറഞ്ഞു മൾട്ടി സ്ക്രീൻ സിനിമാ ഹാളുകൾ ഇ ടിക്കറ്റുകൾ നൽകണമെ ന്നത് നിർബന്ധമാക്കും ലോട്ടറിക്ക് ഏകീകൃത നികുതി ചുമത്തരുതെന്ന് കേരളം യോഗത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു ഏക്ടീകൃത നികുതി നട പ്പാക്കിയാൽ സ്വകാര്യ ഏജൻസികളുടെ വഞ്ചനയും ഇട്ടനിലക്കാരുടെ ഇട പെടലും വ്യാപിക്കുമെന്ന് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു കോട തിയിൽ നിലനിൽക്കുന്ന കേസ് പരിഗണിച്ച് ഇക്കാര്യത്തിൽ അറ്റോർണി ജന റലിന്റെ അഭിപ്രായം തേടിയശേഷം തീരുമാനമെടുക്കാൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു രുട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട സാമ്പത്തിക മാന്ദ്യം അതിജീവിക്കുന്നതിന് ചെലവ് വർദ്ധിപ്പിക്കാനും ധനക്കമ്മി ലക്ഷ്യത്തിൽ ഇളവ് നൽകാനും അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യത്തോട് കേന്ദ്രം അനുകൂലമായി പ്രതികരിച്ചില്ലെന്ന് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു സംസ്ഥാനത്തിന്റെ പൊതുവായ്പയിൽ കേന്ദ്രം കുറവുവരുത്തിയതായും ധനമന്ത്രി നിർമല സീതാരാമനുമായി ന്യൂഡൽഹി യിൽ ബജറ്റിന് മുന്നോടിയായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കുശേഷം അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു സംസ്ഥാനത്തിന് സാമ്പത്തിക വർഷത്തെ കഴിഞ്ഞ് പാദത്തിൽ ആറായിരം കോടി രൂപ വായ്പയെടുക്കാൻ അനുവ ദിച്ച സ്ഥാനത്ത് വരുന്ന മൂന്ന് പാദങ്ങളിലും നാലായിരം കോടി രൂപ മാത്രമേ ലഭിക്കൂവെന്നാണ് കേന്ദ്രം വൃക്തമാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു ഇതുമൂലം വായ്പയെടുക്കുന്നതിൽ ആറായിരം കോടിരൂപയുടെ കുറവുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു

വരുമാനക്കുറവും വെള്ള പ്പൊക്കവും മൂലം നഷ്ടം നേരിടുന്ന സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന സമീപനമാണിതെന്നും തോമസ് ഐസക് പറഞ്ഞു

ടി കൌൺസിൽ യോഗത്തിൽ ഉന്നയിച്ചതായി മന്ത്രി പറഞ്ഞു രദ്ദേഷ്ടങ കേരളത്തിൽ കഴിഞ്ഞവർഷം നിപ രോഗബാധ കണ്ടെത്തിയതിനെ തുടർന്ന് പഴംതീനി വവ്വാലുകളിൽ നടത്തിയ പരിശോധനയിൽ പന്ത്രണ്ടെ ണ്ണത്തിൽ നിപ വൈറസിന്റെ സാന്നിധൃം സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോ ഗൃമന്ത്രി ഡോക്ടർ ഹർഷവർധൻ അറിയിച്ചു

ഉത്പന്നങ്ങൾ സഹകരണ ബ്രാൻഡിലൂടെ സഹകരണ മാർക്കറ്റിംഗ് ശൃംഖല പ്രയോജനപ്പെടുത്തി വിറ്റഴിക്കുന്ന വിപുലമായ സംവിധാനം രൂപീകരിക്കു മെന്നും മന്ത്രി അറിയിച്ചു സഹകരണ സംഘങ്ങൾ തമ്മിലും സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾ തമ്മിലും കൺസോർഷ്യം രൂപീകരിച്ച് കാർഷിക അനുബന്ധ ചെറുകിട വ്യവസായ മേഖലയിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്ന തിന് പ്രോത്സാഹനം നൽകും മാലിന്യ ശേഖരണ സംസ്കരണ രംഗത്ത് സഹകരണ സംഘങ്ങൾ മുഖേന പദ്ധതികൾ തയ്യാറാക്കുമെന്നും മന്ത്രി പറ ഞ്ഞു

രദ്ദേഷ്ടങ പട്ടികവർഗ സങ്കേതങ്ങൾ കേന്ദ്രീകരിച്ച് മാവോയിസ്റ്റുകളുടെ പ്രവർത്ത നം വ്യാപിക്കാതിരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ശക്തമായി ഇടപെടുമെ ന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസ് അറിയിച്ചു മാവോയിസ്റ്റ് ഭീഷണി നേരിടു ന്ന മലപ്പുറം പാലക്കാട് വയനാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ പ്രശ് നങ്ങൾ ചർച്ച ചെയ്യാൻ മലപ്പുറം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർ ന്ന യോഗത്തിനുശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആദിവാസി ഊരുകളിൽ കലക്ടർമാരുടെ നേതൃത്വത്തിൽ സംഘം നിശ്ചിത ഇടവേളക ളിൽ സൌഹൃദ സന്ദർശനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു

ദേവികുളം എം

പിന്നീട് ആവി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ട്രെയിനുകളും സർവ്വീസ് നടത്തിയിരുന്നു

സംസ്ഥാന നേതൃയോഗം ഇന്ന് രാവിലെ കണ്ണൂരിൽ നടക്കും ദേശീയ നേതാക്കളായ ബി

സന്തോഷ് നളിൻ കുമാർ കട്ടിൽ തുടങ്ങി യവർ പങ്കെടുക്കും

ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളുമായി സംസ്ഥാന കമ്മി റ്റിയും ചേരും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയുടെ പശ്ചാത്തല ത്തിൽ പാർട്ടി കേന്ദ്രകമ്മിറ്റി തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനാണ് യോഗം

നാല് വിക്കറ്റ് നേടിയ ലസിത് മലിംഗയാണ് ലങ്കയുടെ വിജയശില്പി ലോകകപ്പിൽ ലങ്കയുടെ രണ്ടാം വിജയമാണിത് ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ നേരിടും

ഞാറ്റുവേലകൾ അടിസ്ഥാന പ്പെടുത്തി പരമ്പരാഗത കൃഷിരീതി തിരിച്ചുകൊണ്ടുവരാൻ ലക്ഷ്യമിട്ട് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തകൾ ഇന്നാരംഭിക്കും സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ എറണാകുളത്ത് മന്ത്രി വി

പ്രാദേശിക ഉത്പന്നങ്ങളുടെ വിപണിയും ഇതോടൊപ്പം സംഘടിപ്പിക്കും

വെജിറ്റബിൾ ആന്റ് പ്രഫൂട്ട് പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ കൊല്ലം നെടുമ്പന കാർഷിക സമിതിക്കായി നിർമിച്ച പുതിയ കെട്ടിടം നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം രദേഷ്ടങ സാമൂഹ്യശ്രദ്ധ ആവശ്യമുള്ള നീറുന്ന പ്രശ്നങ്ങൾ സിനിമകൾക്ക് വിഷ യമാക്കാൻ യുവസംവിധായകർ ശ്രദ്ധിക്കണമെന്ന് ഗവർണർ പി സദാശിവം പറഞ്ഞു പന്ത്രണ്ടാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്രമേള തിരു വനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ സമൂഹത്തെ ശാക്തീകരിക്കാനാവുന്ന കാമ്പയിനുകളുമായി ഹ്രസ്വചിത്ര നിർമ്മാതാക്കൾ രംഗത്തു വരണമെന്നും യുവാക്കളിൽ മികച്ച സിനിമാ സംസ്കാരം വളർത്താൻ ഹ്രസ്വചലച്ചിത്രമേള സഹായകമാകുമെന്നും ഗവർണർ പറഞ്ഞു മേള ബുധനാഴ്ച സമാപിക്കും

ദർവ്വെടുക സംസ്ഥാനത്തിന്റെ വികസനത്തിൽ സമുദ്ര സംരക്ഷണ പ്രവർത്തന ങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു ലോക ഹൈഡ്രോഗ്രാഫിക് ദിനാഘോഷ പരിപാടികൾ തിരുവനന്തപുരത്ത് ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു അവർ ഹാർബർ അടിത്തട്ടുകളിലെ മണ്ണിടിച്ചിലു കൾ കൃത്യമായി പഠനവിധേയമാക്കുന്നതിലൂടെ ദുരന്തങ്ങൾ തടയാനാകു മെന്നും അവർ അഭിപ്രായപ്പെട്ടു രദേഷ്ടെടു കണ്ണൂരിലെ പ്രവാസി വ്യവസായി ആത്മഹത്യ ചെയത സംഭവവുമായി ബന്ധപ്പെട്ട് ഉന്നതതല സംഘം ഫയലുകൾ പരിശോധിച്ചു ഉത്തരമേഖല ന ഗരകാര്യ ജോയിന്റ് റീജിയണൽ ഡയ്രക്ടറുടെ നേതൃത്യത്തിലുള്ള സംഘ മാണ് ആന്തൂരിൽ പരിശോധന നടത്തിയത്

നസീന് നേരെയുണ്ടായ വധശ്രമ കേസിൽ ഒരാ ളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു

ഐ എം കതിരൂർ പുല്ല്യോട് ബ്രാഞ്ച് സെക്രട്ടറി എൻ

രാജേഷ് ആണ് അറസ്റ്റിലായത്

രുട്ട്ട്ട്ട്ട്ട്ട്ട്ട ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി കള്ളവോട്ട് ചെയ്തുവെന്ന പരാതിയിൽ നടപടി സ്വീകരിക്കാത്തതിലും ഫൈനൽ വോട്ടർ പട്ടികയിൽ നിന്നും യു

എഫ് അനുഭാവികളുടെ വോട്ട് നീക്കം ചെയ്തതിലും പ്രതിഷേധിച്ച് ഇന്ന് രാവിലെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കലക്ടറേറ്റിന് മുന്നിൽ ധർണ്ണ നടത്തും

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും